ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ തിരക്കിട്ട ചർച്ചകളുമായി വിവിധ രാഷ്ട്രീയ കക്ഷികൾ

വോട്ടെണ്ണൽ വ്യാഴാഴ്ച ബി ജെ

വനിതാ ഹോക്കിയിൽ ത്രിദിന പരമ്പരയുടെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ ടീം ആതിഥേയരായ കൊറിയയെ ഒന്നിനെതിരെ രണ്ട് ഗോളിന് തോൽപ്പിച്ചു

വ്യാഴാഴ്ച ഫലം വരുന്നതിന് മുന്നോടിയായി ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ വിവിധ കക്ഷി നേതാക്കളുമായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നാളെ കൂടിക്കാഴ്ച നടത്തും ഫലപ്രഖ്യാപനത്തിന് ശേഷം ഉരുത്തിരിയാവുന്ന സാഹചരൃങ്ങൾക്കനുസരിച്ചുള്ള തന്ത്രങ്ങൾ ചർച്ചയാവും വിവിധ എക്ക്സ്ടിറ്റ് പോളുകൾ എൻ

എ വീണ്ടും അധികാരത്തിൽ വരുമെന്ന പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചർച്ചകൾ കൂടുതൽ വിവരങ്ങളുമായി ്രജ്ഞിത്ത്

മുതിർന്ന ബി ജെ

ജെ പിയിലെയും ദേശീയജനാധിപത്യ സഖ്യത്തിലേയും നേതാക്കൾ എൻ

ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യമുണ്ടായാൽ എൻ ഡി എ വിരുദ്ധ കക്ഷികളുടെ കൂട്ടായ്മയിലാണ് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി എൻ സി പി അധ്യക്ഷൻ ശരത് പവ്വാർ എന്നിവരുമായി ടി ഡി പി അധ്യക്ഷൻ എൻ ചന്ദ്രനായിഡു ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി

ജെ പി വിരുദ്ധ ഗവൺമെന്റിന് പിൻതുണ തേടി അദ്ദേഹം വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നുണ്ട് സമാജ് വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ബി

പി അധ്യക്ഷ മായാവതി എന്നിവരുമായി ശനിയാഴ്ച ലക്നൌവിൽ ശ്രീ നായിഡു ചർച്ച നടത്തിയിരുന്നു ലോക് താന്ത്രിക് ജനാതാദൾ നേതാഷ്ക്രിരത് യാദവുമായും സി

ഐ നേതാക്കളുമായും ട്ടു ഡി പി നേതാവ് ചർച്ച നടത്തി തൃണമൂൽ അധ്യക്ഷ മമതാ ബ്രിന്റർജി ആംആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രി്പാൾ സി

ഐഎം ജനറൽ സെക്രട്ടറി സീതാറാം ്ലെയ്ച്ചൂരി എന്നിവരുമായി നിരവധി തവണ ശ്രീ നായിഡു ്ചർച്ചകൾ നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ അരുൺ ജെയ്റ്റ്ലി രാജ്യത്തെ വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒരേ സന്ദേശമാണ് തരുന്നതെന്നും അത് തന്നെയാണ് തെരഞ്ഞെ ടൂപ്പ് ഫലമെന്നൂം ശ്രീ

അതിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് സ്ഥാനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു വോട്ടിങ് മെഷീനുകളെ സംബന്ധിച്ച വ്യാജ ആരോ പണങ്ങൾക്ക് ഇനി സ്ഥാനമില്ലെന്നും എക്സിറ്റ് പോൾ ഫല സൂചനകളും വ്യാഴാഴ്ച പുറത്തുവരുന്ന അന്തിമ ഫലങ്ങളും ഒരേ ദിശയിലാകുമെന്നും ശ്രീ

ജെയ്റ്റ്ലി പറഞ്ഞു

എം ഗോൾഡ് എഫ്

റെയിൻബോ വിവിധ് ഭാരതി ആകാശവാണിയുടെ മറ്റ് പ്രാദേശിക ചാനലുകൾ എന്നിവയിലൂടെ ഓരോ മണിക്കൂറിലും പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ ലഭ്യമായിരിക്കും

ജെ

സ്ഥാനാർത്ഥിമാരെയും പ്രവർത്തകരെയും തൃണമൂൽ അദ്ധ്യക്ഷ മമത ബാനർജി ഭീഷണിപ്പെടുത്തുകയാണെന്ന് മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ പിയൂഷ് ഗോയൽ മാധ്യമങ്ങളോട് പറഞ്ഞു

വോട്ടെണ്ണലിനിടയിലും ശേഷവും അക്രമമുണ്ടാകാൻ സാധൃതയുള്ളതിനാൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുവരെ കേന്ദ്ര സേനയുടെ വിന്യാസം തുടരണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട് ഒഡീഷ പശ്ചിമബംഗാൾ കർണാടക മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ വോട്ടെണ്ണൽ സുതാര്യമാണെന്ന് കമ്മീഷൻ ഉറപ്പാക്കമെന്നും ബിജെപി ആവശ്യപ്പെട്ടു

ജെ പി സഖ്യത്തിൽ നിന്നു പുറത്തുപോയ സുഹേൽദേവ് ഭാരതീയ സമാജ് പാർട്ടിയിലെ ഒ

രാജ്ഭറിനെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മന്ത്രി സഭയിൽ നിന്ന് പുറത്താക്കി

രാജ്ഭർ ബി ജെ

മുഖ്യമന്ത്രിയുടെ ശുപാർശ ഗവർണർ രാഹ്നായിക് അംഗീകരിച്ചതായി രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചു

പത്തുവർഷത്തിനിടയിൽ ഏറ്റവും വലിയ ഏകദിന നേട്ടമൂണ്ടാക്കിയാണ് വിപണി വ്യാപാരം അവസാനിപ്പിച്ചത്

കിലോഗ്രാം കെൽവിൻ മ്മോൾ ആംപിയർ എന്നിവയാണ് പരിഷ്ക്കരിച്ചത്

ന്യൂഡൽഹിയിൽ ഇതിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സംസാരിച്ച രാജ്യാരക്ഷാ മന്ത്രാലയം മുൻ ശാസ്ത്രോപദേശകൻ ഡോ

ഈ രംഗത്ത് ഇന്ത്യയുടെ ശേഷി കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

എം ഉച്ചകോടിയിലെ മുഴുവൻ സമയ അംഗമായി ഇന്ത്യ പങ്കെടുക്കുന്ന രണ്ടാമത് ഉച്ചകോടിയാണ് കിർഗിസിലേത്

എഫ്

കൂടാതെ പ്രദേശികമായും അന്തർദേശീയ്മാട്യൂ് പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളും യോഗം ചർച്ച ചെയ്യും

നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ച് സമർപ്പിച്ച ജാമ്യാപേക്ഷയിന്മേലുള്ള പുനപരിശോധനാ ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു വിദേശത്ത് പോയി ചികിത്സിക്കാൻ അനുവദിക്കണമെന്ന ഹർജിയിലായിരുന്നു നടപടി ആറ് മാസത്തെ ജാമൃത്തിനുശേഷം മേയ് ഏഴിനാണ് നവാസ് ഷെരീഫ് കോട്ട് ലഖ്പതി ജയിലിൽ തിരിച്ചെത്തിയത്

കേസിൽ ഏഴുവർഷത്തേയ്ക്കാണ് നവാസ് ഷെരീഫിന് ജയിൽ ശിക്ഷ വിധിച്ചത്

സ്ഫോടക വസ്തുക്കള്ള് നീർമ്മിക്കുന്ന ഒരു ജനവാസ കേന്ദ്രത്തിൽ സുരക്ഷ്ട് സ്നെ നടത്തിയ മിന്നൽ പരിശോധനയെ തുടർന്നായ്ക്കിരുന്നു് ഏറ്റുമുട്ടലെന്ന് ഈജിപ്റ്റിലെ ആഭ്യന്തര മന്ത്രാലയം ആറിയിച്ചു കൊല്ലപ്പെട്ടവർക്ക് മുസ്ലീം ബ്രദർഹുഡ് എന്ന സ്ട്ല്ടനയുമായി ബന്ധമുള്ളതായി ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു മറ്റൊരു മിന്നൽ പരിശോധനയെത്തുടർന്നുണ്ടായ വെടിവെയ്പിൽ കെയ്റോയിലെ അൽ ഷൊറൌക് നെയ്ബർഹുഡ് എന്ന സംഘടനയിലെ ആക്രമണകാരികളെന്ന് സംശയിക്കുന്ന അഞ്ചുപേർ കൊല്ലപ്പെട്ടു സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തതായി മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ പറയുന്നു

ഇന്നലെ വൈകിയുണ്ടായ കലാപത്തിൽ ശിക്ഷയനുഭവിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് അംഗങ്ങളാണ് കലാപം നടത്തിയതെന്ന് നിയമവകുപ്പ് പ്രസ്താവനയിൽ അറിയിച്ചു

ആറ് പുരുഷന്മാരും നാല് വനിതാ താരങ്ങളും സെമിഫൈനലിൽ ബർത്ത് നേടിയതോടെയാണ് മെഡൽ ഉറപ്പാക്കിയത്

അസ്സാമിൽ നിന്നുള്ള ആറ് ബോക്സർമാരാണ് രാജ്യത്തിന് വേണ്ടി കളത്തിലിറങ്ങുന്നത് കഴിഞ്ഞ വർഷത്തെ ടൂർണമെന്റിൽ ഇന്ത്യ ആറ് സ്വർണ്ണമെഡലുകളാണ് കരസ്ഥമാക്കിയത്